അനധികൃത മണൽ പ്രൂന്നം നടത്തുന്ന ഏജൻസികളെ പ്രോസിക്യൂട്ട് ച്ചെയ്യ്ണം എന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീംകോടതി ്ക്ടോദ്ദ് സംസ്ഥാന ഗവൺമെന്റുകളുടെയും സി ബി ഐ യുടെയും അഭിപ്രായം ആരാഞ്ഞു

ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴവർദ്ധന തേർഡ് പാർട്ടി ഇൻഷുറൻസ് സംബന്ധിയായ പ്രശ്നങ്ങൾ വാടക വാഹന നിയന്ത്രണം റോഡ് സുരക്ഷ തുടങ്ങിയവയാണ് ഭേദഗതിയിലുള്ളത്

കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ഭേദഗതി വിവരാവകാശ ഭേദഗതി തുടങ്ങിയവയാണ് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരുന്ന മറ്റ് ബില്ലുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലാണ് ലോക്സഭയിൽ ഇന്ന് പരിഗണിക്കുന്നത് ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബില്ലും സഭയിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്

ആദായ നികുതി വകുപ്പിന്റെ കീഴിലുള്ള പ്രാദേശിക ഓഫീസുകളുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ട പരിപ്പുട്ടികൾ ദിനാചരണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ചതായി ്യൂക്സ്ത്രാലയം അറിയിച്ചു

നിരവധി നികുതിദായകർ വരുമാന നികുതി റിട്ടേൺ സമർപ്പണത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് തീയതി നീട്ടുന്നതെന്ന് ധനകാര്യമന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കർണാടകത്തിൽ പുതിയ ഗവൺമെന്റ് രൂപവൽക്കരണത്തിന് ഒരുങ്ങി ബി ജെ പി ഗവൺമെന്റ് രൂപവൽക്കരണം സംബന്ധിച്ച് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ കാത്തിരിക്കുകയാണെന്ന് ബി ജെ പി എം എൽ എ മധുസ്വാമി ബംഗളുരൂവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയ നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാലൂടൻ നിയമസഭാകക്ഷി നേതാവിനെ തെരിക്കുഞ്ഞടുത്ത് ഗവൺമെന്റ് രൂപീകരിക്കാനായി ഗവർണറെ പ്പിക്കുമെന്ന് ശ്രീ സ്വാമി കൂട്ടിച്ചേർത്തു

കേന്ദ്ര ഗവൺമെന്റിന്റെയും തമിഴ്നാട് പഞ്ചാബ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെയും പ്രതികരണം ആരാഞ്ഞ് എസ് എ ബോഗ്ഡെയുടെ നേതൃത്വത്തിലുള്ള ബഞ്ച് നോട്ടീസ് അയച്ചു അനധികൃത മണൽ ഖനനം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുത്തുന്നു എന്ന ഹർജിയിലാണ് പരമോന്നത കോടതിയുടെ നടപടി

പുൽവാമ ശ്രീനഗർ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടന്നത് പുൽവാമയിൽ അതിർത്തി വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് തൻവീർ അഹമ്മദ് ഖാനിയുടെ അഘോസയിലെ താമസസ്ഥലം എൻഐഎ സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കി

കേസുമായി ബന്ധപ്പെട്ടവരെ അന്വേഷണ സംഘം ചോദ്യാ ചെയ്തുവരുകയാണ്

ഒരു റിപ്പോർട്ട്

വിവിധ വിഭാഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച വച്ച എൻസിസി കേഡറ്റുകൾക്ക് ഒൻപത് അവാർഡുകൾ കൂടി നൽകാനും ഗവൺമെന്റ് തീരുമാനിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധ്യമാക്കുമെന്ന് പോലീസ് അറിയിച്ചു

ഇതാദ്യമായാണ് ഇത്തരമൊരു സൂചിക സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് ഔദ്യോഗിക വാർത്താകുറിപ്പിൽ പറയുന്നു

പൊതുജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് ആവശ്യമായ പരിവർത്തനങ്ങളും പുതിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും

ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായാ ണ് പിഎസ്സിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളെ കാണേണ്ടതെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ബക്കിംങ്ഹാം കൊട്ടാരത്തിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ രാജ്ഞി ബോറിസ് ജോൺസണെ പുതിയ ഗവൺമെന്റ് രൂപവൽക്കരണത്തിനായി ക്ഷണിക്കും മുതിർന്ന കൃാബിനറ്റ് മന്ത്രിമാരെ ജോൺസൺ ഇന്ന് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്

ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിനെയാണ് പ്രണോയ് തോൽപ്പിച്ചത്

മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ താരം സമീർ വെർമ ഡെൻമാർക്കിൻ ആന്റേഴ്സ് ആൻസനോട് പരാജയപ്പെട്ടു

സൊണാലി എന്ന് നാമകരണം ചെയ്ത ഉത്പന്നത്തിൽ ന്യിന്ന് മണ്ണിൽ എളുപ്പം അലിഞ്ഞുചേരുന്ന ക്യാരി ബാഗുകളും പാക്കിംഗ് വ്സ്തുക്കളും നിർമ്മിക്കാനാവും വസ്ത്ര നിർമ്മാണ മേഖലയിലും ഭക്ഷ്യോത്പാദന രംഗത്തും സൊണാലി പുതിയ വിപ്തവം സൃഷ്ടിക്കുമെന്ന് ബംഗ്ലാദേശ് ജൂട്ട് മിൽ കോർപ്പറേഷന്റെ ശാസ്ത്രോപദേഷ്ടാവും ഗവേഷണ തലവനുമായ മുബാരക് അഹമ്മദ് ഖാൻ അവകാശപ്പെട്ടു